മൊബൈൽ കടകൾ ഞായറാഴ്ചയും വർക്ക്ഷോപ്പുകൾ ഞായർ വ്യാഴം ദിവസങ്ങളിലും തുറക്കുമെന്നും മുഖ്യമന്ത്രി

ത അന്ത്യോദയ അന്നയോജന മുൻഗണനാ കാർഡ് ഉടമകൾക്ക് ഈ മാസവും അടുത്ത രണ്ട് മാസങ്ങളിലും ഇരട്ടിയോളം ധാന്യം ലഭിക്കുമെന്ന് മന്ത്രി പി തിലോത്തമൻ വാർത്തകൾ വിശദമായി സംസ്ഥാനത്തിന്റെ ഭക്ഷ്യശേഖരം വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

അതിർത്തി വഴി രോഗകളെ കടത്തി വിടുന്നത് സംബന്ധിച്ച് കർണ്ണാടകം ഉത്തരവിറക്കിയിട്ടുണ്ട് മൊബൈൽ കടകൾ ഞായറാഴ്ചയും വർക്ക്ഷോപ്പുകൾ ഞായർ വ്യാഴം ദിവസങ്ങളിലും തുറക്കാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു വർക്ക്ഷോപ്പുകൾ തുറക്കുന്ന ദിവസങ്ങളിൽ സ്പെയർ പാർട്സ് കടകളും തുറക്കും ഫാൻ എ സി വിൽപ്പനശാലകളും ബാർബർ ഷോപ്പുകൾ ആഴ്ചയിൽ ഒരു ദിവസം തുറക്കുന്ന കാര്യം പരിഗണിക്കും രജിസ്റ്റേഡ് ഇലക്ട്രീഷ്യന്മാർക്ക് വീടുകളിലും ഫ്ളാറ്റുകളിലും അറ്റകുറ്റപ്പണിക്ക് പോകുന്നതിന് അനുമതി നൽകും

ഈ ഘട്ടത്തിൽ എം പി ഫണ്ട് പൂർണ്ണമായി കോവിഡ് പ്രതിരോധ പ്രവർത്തനവും ചികിത്സയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനങ്ങളിൽ വിനിയോഗിക്കാൻ നിർദ്ദേശം നൽകുകയാണ് കേന്ദ്രം ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദരര മലബാറിലെ ക്ഷേത്രം ജീവനക്കാർക്ക് ലോക്ഡൌൺ കാലത്തെ അടിയന്തര ആവശ്യങ്ങൾക്കായി അഞ്ചുകോടി രൂപ ചെലവഴിക്കും

കാസർകോട് നാലും കണ്ണൂരിൽ മൂന്നും കൊല്ലം മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഇതിൽ നാലുപേർ വിദേശ രാജ്യത്തുനിന്നും വന്നവരും രണ്ടുപേർ നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്തവരും മൂന്നുപേർ രോഗികളുമായി സമ്പർക്കത്തിലേർപ്പെട്ടവരുമാണ്

ഇതിൽ അഞ്ചുപേർ കണ്ണൂരും നാലുപേർ എറണാകുളത്തും ഒന്നുവീതം പേർ തിരുവനന്തപുരം ആലപ്പുഴ കാസർകോട് ജില്ലകളിലുമാണ്

ലോക്ഡൌണിന് ശേഷമുള്ള നിയന്ത്രണങ്ങൾ സംബന്ധിച്ച വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്രത്തിന് അയയ്ക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

മംഗലൂരുവിലേക്ക് ചികിത്സക്ക് പോകുന്ന ആംബുലൻസുകളെ ഉപാധികളോടെ കടത്തിവിടാൻ തീരുമാനിച്ചു കൂടുതൽ വിവരങ്ങളുമായി കാസർകോടുനിന്നും ആകാശവാണി പ്രതിനിധി പി

ദുബൈയിൽ നിന്നെത്തിയ മാനന്തേരി സ്വദേശിക്കും പാട്യം മുതിയങ്ങ സ്വദേശിക്കുമാണ് കണ്ണൂരിൽ കോറോണ രോഗബാധ ഉണ്ടായത്

ഇദ്ദേഹം കണ്ണൂർജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ഒട്ടേറെ പേരുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി ഇദ്ദേഹവുമായി സമ്പർക്കത്തിലേർപ്പെടാൻ സാധ്യതയുള്ള മുഴുവൻ ആളുകളും പ്രത്യേക ജാഗ്രത പുലർത്തുകയും ആരോഗ്യ വകുപ്പ് അധികൃതരുമായി ബന്ധപ്പെടുകയും ചെയ്യണമെന്ന് കണ്ണൂർജില്ലാ കലക്ടർ അറിയിച്ചു

ദേദ മലപ്പുറം ജില്ലയിൽ വേങ്ങര കണ്ണമംഗലം സ്വദേശിനിയ്ക്കാണ് വൈറസ് ബാധയെന്ന് ജില്ലാ കലക്ടർ ജാഫർ മലിക് അറിയിച്ചു നിസാമുദ്ദീനിലും മുംബൈയിലും കുടുംബാംഗങ്ങൾക്കൊപ്പം താമസിച്ച് മടങ്ങിയെത്തിയവരാണ് ഇവർ

ഞങ്ങളുടെ കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ നൽകുന്ന റിപ്പോർട്ട്

ഏറ്റവും കൂടുതൽ രോഗബാധിതരും മരണവും മഹാരാഷ്ട്രയിലാണ്

രോഗബാധിതരുടെ എണ്ണം നാല് ലക്ഷത്തോട് അടുക്കുകയാണ്

രുമ പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ അന്നയോജന നടപ്പാക്കുന്നതിന് കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഫുഡ് കോർപ്പറേഷൻ ഭക്ഷ്യധാന്യം അയച്ചതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൻ കീഴിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് അടുത്ത മൂന്നുമാസത്തേക്ക് ഓരോരുത്തർക്കും അഞ്ചുകിലോ ഭക്ഷ്യധാന്യം നൽകും രുമ സപ്പൈകോ ഭക്ഷ്യവസ്തുക്കൾക്ക് വില വർദ്ധിപ്പിച്ചത് സാധാരണ നടപടി മാത്രമാണെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അലി അസ്ഗർ പാഷ അറിയിച്ചു

ദരര കൊറോണ വൈറസ് മൂലവും രോഗബാധിതരെ ചികിത്സിക്കുന്നതിനിടയിലും ജീവൻ നഷ്ടമാകുന്ന ആരോഗ്യ പ്രവർത്തകർ പ്രധാൻമന്ത്രി ഗരീബ് കല്യാൺ പാക്കേജ് ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

ദേദ വയനാട് ജില്ലയിൽ രാഹുൽഗാന്ധി എം

പിമാരായ ബെന്നി ബെഹനാൻ ടി

കോവിഡ് ജില്ലാതല അവലോകനയോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും